ഗ്രാമീൺ സഡക് യോജന ഭേദഗതികളോടെ തുടരാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം

ന്യൂഡൽഹിയിൽ നടന്നു ഈ വർഷത്തെ ലോക ലൈവ ഇന്ധന ദിനാചരണത്തിൽ സംസ്പാരിക്കുകയായിരുന്നു അദ്ദേഹം ജൈവ ഇന്ധനത്തിന്റെ ഉപയോഗം വർധിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധചെലുത്തണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജൈവപിണ്ഡത്തിൽ നിന്നും ജൈവ ഇന്ധനം ഉൽപാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത്

എഥനോളിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് ഇന്ധനച്ചെലവ് കുറയ്ക്കാനാകും

നിരവധി സുപ്രധാന ബില്ലുകൾ പാസാക്കിയാണ് സമ്മേളനം അവസാനിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായുള്ള ഭേദഗതി സംസ്ഥാനങ്ങൾക്കായുള്ള നഷ്ടപരിഹാര ഭേദഗതി സംക്ഷിപ്ത ജി എസ് ടി ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ഇവയിൽ ഉൾപ്പെടും

പ്രവാസി ഇന്ത്യാക്കാർക്ക് പ്രോക്സി വോട്ടിംഗ് അവകാശം ഉറപ്പാക്കാനാവശ്യമായ ഭേദഗതിയും ലോക്സഭ ഇന്നലെ പാസാക്കി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്

ബില്ലിന് ഇന്നലെ ലോക്സഭയുടെ അംഗീകാരം ലഭിച്ചിരുന്നു മുത്തലാഖ് ചൊല്ലിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വൃക്തിക്ക് ജാമ്യം അനുവദിക്കാൻ മജിസ്ട്രേട്ടിന് അധികാരം ഉണ്ടായിരിക്കും എന്ന വൃവസ്ഥ ഉൾപ്പെടെ മൂന്ന് ഭേദഗതികളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുത്തലാഖ് ബില്ലിലെ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭയും നേരത്തെ അംഗീകാരം നൽകിയിരുന്നു

മുസ്സീം സ്ത്രീകളുടെ ഭരണഘടനാപ്പിരമാർയ അവകാശങ്ങൾ ഉറപ്പാക്കാനും ബില്ലിന് കഴിയുമെന്ന് പ്രവാർലമെന്റിന് പുറത്ത് അദ്ദേഹം വാർത്താ ലേഖകരോട് പറഞ്ഞു

ശൂന്യവേളയിൽ കോൺഗ്രസ് സഭാനേതാവ് ഗുലാം നബി ആസാദാണ് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസിന്റെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നിരസിച്ചതും സഭയിൽ ബഹളത്തിനിടയാക്കി ആന്ധ്രപ്രദേശിന് പ്രത്യേക പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട് തെലുഗുദേശം എം പി മാർ പാർലമെന്റിൽ നടത്തുന്ന പ്രതിഷേധം ഇന്നും തുടർന്നു

വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാസേന കണ്ടെടുത്തു രഹസൃവിവരത്തെ തുടർന്ന് ചപ്രിയാൻ മേഖലയിലെ ഖത്ത് പഞ്ചാൽ നലയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒളിത്താപ്പുളം കണ്ടെത്തിയത്

ഇടുക്കി ചെറുതോണി അണക്കെട്ടിലെ മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടും ജലനിരപ്പ് വർദ്ധിക്കുന്നത് ആശങ്ക വളരുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

വ്യോമസേനയുടെ എ

എച്ച് എന്നിവയും കോസ്റ്റ് ഗാർഡ് നേവി എന്നിവയുടെ ഒരു എ

കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വടക്കൻ ജില്ലകളിലാകെ വ്യാപക നാശനഷ്ടങ്ങളാണ്

മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞു

ദുരിതാശ്വാസത്തിനായി കർണാടക ഗവൺമെന്റ് പത്ത് കോടി രൂപ അനുവദിച്ചതായി ശ്രീ എച്ച്

കുമാരസ്വാമി അറിയിച്ചു

സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാനൃങ്ങൾ വിതരണം ചെയ്യാനും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു

സംസ്ഥാനത്തുടനീളമുള്ള എൻ ആർ സി സേവാകേന്ദ്രങ്ങളിൽ ഇവ ലഭ്യമാക്കിയിട്ടുണ്ട്

എന്നാൽ അർഹരായ എല്ലാ ഇന്ത്യൻ പൌരൻമാർക്കും രജിസ്റ്ററിന്റെ അന്തിമ പട്ടികയിൽ ഇടംപിടിക്കാൻ അവസരം ഉറപ്പാക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു

അമർനാഥിലേക്ക് പരമ്പരാഗത മാർഗമായ ബിൽത്താൻ വഴിയാണ് ഇവരുടെ യാത്ര

ഇവർ ഇന്ന് രാവിലെയോടെ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്

മഹാരാഷ്ട്ര ് എ ടി എസ് സംഘവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത് പടിഞ്ഞാറൻ നല്ലസോപാരയിലെ ഭാന്ദർഅലിയിൽ ഇന്നലെ രാത്രിയോടെ കണ്ടെടുത്ത വസ്തുക്കൾ ആർ ഡി എക്സ് ആണോയെന്ന് നിർണയിക്കാൻ ഫോറൻസിക് സംഘം പരിശോധന നടത്തിവരികയാണ്

ഏഴ് സൈനികർക്ക് പരിക്കേറ്റു സൈന്യവും ശക്തമായി തിരിച്ചടിച്ചതായി പ്രവിശ്യാ ഗവർണറുടെ വക്താവ് അറിയിച്ചു